എം എസ് ബ്രോഡ്ബാൻഡ് ഇന്റെർന്റ്റ് സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പ്പിൻവലിച്ചു

ലോക കേരള സഭയുടെ രണ്ടാം സമ്മേളനം ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും

പുതുവർഷപ്പിറവിയോടനുബന്ധിച്ച് ലോകം മുഴുവൻ വൈവിധ്യമാർന്ന ആഘോഷപരിപാടികൾ നടന്നു

അടുത്ത അഞ്ച് വർഷങ്ങളിലാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുക

്നിർമ്മല സീതാരാമൻ ഇക്കാര്യം പറഞ്ഞത്

എം

എം എസ് സേവനങ്ങൾക്ക് നിരോധനമേർപ്പെടുത്തിയത് ക്ഷീഞ്ഞ രാത്രി മുതലാണ് എസ്

കതുവ ജില്ലയിലെ ലഖൻപൂർ അനന്ത്നാഗ് ജില്ലയിലെ ലോവർമുണ്ട റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ടോൾ ബൂത്തുകൾ ഇന്ന് മുതൽ നിർത്തലാക്കിയിട്ടുണ്ട്

വ്യവസായ ഉത്പാദന മേഖലകളിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഗവൺമെന്റ് ഉപദേഷ്ടാവ് കെ

ശർമ്മയുടെ നേതൃത്വത്തിൽ ഉന്നത തല സമിതി രൂപീകരിക്കുമെന്നും ശ്രീ

നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കും നാഷണൽ ഹൈവേസ് ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമാണ് ലഫ്റ്റനന്റ് ഗവർണർ ഈ നിർദ്ദേശം നൽകിയത്

പീപ്പിൾസ് ലിബറേഷൻ ആർമിയും മണിപ്പൂർ നാഗ പീപ്പിൾസ് ഫ്രണ്ടുമാണ് ആക്രമണം നടത്തിയതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടി രണ്ട് സൈനികർക്ക് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു ഇതിൽ ഒരാൾ പിന്നീട് മരിച്ചു രണ്ട് തീവ്രവാദികളും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി

നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയതിനെ കുറിച്ച് സംസാരിക്കവേ പൌരത്വവുമായി ബന്ധപ്പെട്ട ഏത് നിയമവും പാസ്സാക്കാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണെന്നും കേരള നിയമസഭ ഉൾപ്പെടെ ഒരു നിയമസഭയ്ക്കും ഇതിന് അധികാരം ഇല്ലെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു പൌരത്വഭേദഗതി നിയമം രാജ്യത്തെ ഒരു പൌരനും എതിരല്ലെന്നും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ആറ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നതിനാണ് നിയമം കൊണ്ടുവന്നതെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു

വെങ്കയ്യനായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് നവവത്സര ആശംസകൾ നേർന്നു സമാധാനപരമായും അവധാനതയോടും അനുകമ്പയോടും ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ സ്വയം സമർപ്പിക്കാനുള്ള അവസരമാണ് പുതുവർഷ ആരംഭവും പുതുദശക പിറവിയും എന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സന്ദേശത്തിൽ പറഞ്ഞു ദയയും കൂടുതൽ അനുകമ്പയും ദാക്ഷിണ്യവും ഉള്ളവരായി മാറണമെന്ന് ഉപരാഷ്ട്രപതി എം

ലോകത്തിന്റെ സന്തോഷത്തിനും ക്ഷേമത്തിനും അഭിവൃദ്ധിക്കുമായി പ്രാർത്ഥിക്കണമെന്നും ജനങ്ങളോട് ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു

പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് വിവിധ ആഘോഷ പരിപാടികൾ അരങ്ങേറി ചെന്നൈയിലെ മറീന ബീച്ചിൽ ആയിരത്തോളം പേർ പുതുവർഷത്തെ വരവേൽക്കാനായി ഒത്തുചേർന്നു ഗോവയിലെ വിവിധ ബീച്ചുകളിലും സ്ഥലങ്ങളിലും പുതുവർഷ ആർഘാഷ പരിപാടികൾ നടന്നു

ഈ പരിപാടികളിൽ വിനോദസഞ്ചാരികൾ പങ്കെടുത്തു ദുബ്ബായിയിൽ ബുർജ്ജ് ഖലീഫ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ് പ്ട്ക്കങ്ങളുടെ വർണ്ണ വിസ്മയങ്ങൾ തീർത്തു

ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് കനക ക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോക കേരള സഭയുടെ രണ്ടാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യും ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ പൊതുവേദിയാണ് ലോക കേരള സഭ എന്ന ആശയത്തിനു പിന്നിൽ

ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സഹമന്ത്രിയായ ഡോ

ചന്ദ്രോപരിതലത്തിലെ ദക്ഷിണ ധ്രുവത്തിൽ ബഹിരാകാശ വാഹനം ഇറക്കുന്നതിനാണ് ഐ എസ് ആർ ഒ പദ്ധതിയിട്ടത്

അത്തരം സംഭവങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് ഇന്നലെ ട്വീറ്റ് ചെയ്തു ബാഗ്ദാദിലെ യു എസ് എംബസിയിൽ ഇറാനിയൻ പ്രതിഷേധക്കാർ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ട്രംപ് ഇങ്ങനെ പ്രതികരിച്ചത് ഇതൊരു മുന്നറിയിപ്പല്ല ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു

എ

അമേരിക്കൻ താത്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആ രാജ്യം നടത്തുന്ന നടപടികൾക്ക് പിന്തുണ നൽകുന്നതായും യു എ

ഇസ്ലാമിക് സ്റ്റേറ്റിനെ നേരിടുന്നതിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകളെയും യു

ഇ പ്രശംസിച്ചു

എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇതിനുശേഷം യു എസ് ചൈന വ്യാപാര ബന്ധം സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് താൻ ബീജിംഗിലേക്ക് പോകുമെന്നും അദ്ദേഹം ഇന്നലെ ട്വീറ്റു ചെയ്തു

കരാറിന്റെ ആദ്യ ഘട്ടമായി നികുതി കുറയ്ക്കാൻ അമേരിക്കയും വലിയ അളവിൽ അമേരിക്കൻ ഫാം ഉത്പന്നങ്ങൾ വാങ്ങാൻ ചൈനയും കഴിഞ്ഞ മാസം തീരുമാനമെടുത്തിരുന്നു

അറബ് സേനയ്ക്കൊപ്പം ചേർന്ന് സുഡാന്റെ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സംഘർഷങ്ങളിൽ ഇടപെടുന്നുണ്ടെന്ന് ആരോപുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ ദീർഘകാലം ഏകാധിപതി ആയിരുന്ന പ്രിജ്ജിഡ്ന്റ് ഒമർ അൽ ബാഷിറിനെ സൈന്യം പുറത്താക്കിയിരുന്നു ഇപ്പോൾ് സൈനൃത്തിന് പങ്കാളിത്തമുള്ള ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത് കഴിഞ്ഞയാഴ്ച സുഡാൻ ഗവൺമെന്റും വിമതരും ത്മ്മിൽ സമാധാന കരാർ ഒപ്പുവച്ചിരുന്നു